ഭവനങ്ങളിൽ പൈപ്പ് വഴി കുടിവെള്ളമെത്തിച്ചു കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കോവിഡ് രോഗബാധ്യ പ്പ്ർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധപ്രവർത്തുന്നുങ്ങൾ ഉൌർജ്ജിതമാക്കാൻ കേന്ദ്രസർക്കാർ ഉന്നതതല സംഘങ്ങള്ളംനിയോഗിച്ചു

പോരാട്ടം

ശുദ്ധജലത്തിന്റെ ലഭ്യത ഉറപ്പ് വരുത്തുന്നതിലൂടെ രോഗങ്ങളുടെ വ്യാപനത്തിനും അന്ത്യമാകുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു

സൌരോർജ ഉത്പാദനത്തിൽ വിന്ധ്യാചൽ മേഖൽ വലിയ കുതിച്ചുചാട്ടം നടത്താൻ ഒരുങ്ങുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

യോഗത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സന്നിഹിതനാ യിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എം

യും ബി ജെ

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ചെന്നൈ സന്ദർശനത്തിലാണ് ഇരുപാർട്ടികളും ഒന്നിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനമെടുത്തത് സീറ്റ് പങ്കിടൽ അടക്കമുള്ള് വിഷയങ്ങളിൽ ശ്രീ ഷായും തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഉപമുഖ്യമന്ത്രി ഒ പനീർശെൽവം അടക്കമുള്ള നേതാക്കളും തമ്മിൽ ചർച്ച നടന്നതായാണ് സൂചന

ഇന്നലെ ആരംഭിച്ചു ന്യൂവിക അഭ്യാസത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയമായി ്വികസിപ്പിച്ച കോർവെറ്റ് കപ്പൽ കമോർത്തയും മിസൈൽ ക്കോർപെറ്റ് കപ്പലായ കാർമുക് ഉം പങ്കെടുക്കുന്നു കോവിഡ് പശ്ചാത്തലിത്തിൽ സമ്പർക്കം പരമാവധി ഒഴിവാക്കിയാണ് അഭ്യാസങ്ങൾ നടത്തുക മുന്ന് നാവികസേനകൾക്കും ഇട്ടയിലെ പരസ്പര സഹകരണവും ഏകോപനവും വർധിപ്പിക്കാൻ അഭ്യാസം സഹായകരമാകും

ബിശ്വജിത് ഡൈമറി എം

ഇമ്മാനുവൽ മൊഷാഹരി എന്നിവരാണ് ഗുവാഹത്തിയിൽ നടന്ന പരിപാടിയിൽ ബിജെപിയിൽ ചേർന്നത് മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ബിജെപി അധ്യക്ഷൻ രഞ്ജിത് കുമാർ ദാസ് ദേശീയ ജനറൽ സെക്രട്ടറി ദിലീപ് സൈകിയ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു

ട്രെയിനുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഉപരോധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി പ്രതിഷേധക്കാർ പറഞ്ഞു പഞ്ചാബിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് തീരുമാനം എല്ലാ ട്രെയിൻ സർവീസുകളും പുനഃസ്ഥാപിക്കണ മെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ചരക്കുകളും പാസഞ്ചർ ട്രെയിൻ സർവീസുകളും പുനരാരംഭിക്കുന്നതിന് പഞ്ചാബ് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു

പ്രതിദിന രോഗികളുടെ എണ്ണത്തിലും ആകെ രോഗികളുടെ എണ്ണത്തിലും ഈ സംസ്ഥാനങ്ങളിൽ വർദ്ധനവ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം

നേരത്തെ ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് മണിപ്പൂർ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലേക്കും കേന്ദ്രം ഉന്നതത്ല സംഘങ്ങളെ നിയോഗിച്ചിരുന്നു

രാജസ്ഥാനിൽ രോഗവ്യാപനം ഏറ്റവും ഉയർണ്ണ് എട്ട് ജില്ലകളിൽ രാത്രികാല കർഫ്യു ഏർപ്പെടുത്തി മധ്യപ്രിദേശിൽ ഭോപാൽ ഇൻഡോർ ഉൾപ്പടെ അഞ്ച് നഗരങ്ങളില്റും ര്യാത്രികാല കർഫ്യു ഏർപ്പെടുത്തി

ബ്രസീൽ ഫ്രാൻസ് റഷ്യ സ്പെയിൻ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലും രോഗബാധ രൂക്ഷമായി തുടരുകയാണ്

മറിച്ചുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും പ്രസ്താവനയിൽ അദ്ദേഹം വൃക്തമാക്കി സൈബർ അധിക്ഷേപങ്ങൾ തടയാനെന്ന പേരിൽ ഇടതു സർക്കാർ കൊണ്ടുവന്ന മാധ്യമ മാരണ ഓർഡിനൻസ് ഇന്ത്യൻ ഭരണ ഘടന ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുൾപ്പെടെയുള്ള മൌലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാനാണ് പൊലീസ് നിയമ ഭേദഗതി കൊണ്ടു വന്നതെന്ന് അദ്ദേഹം തൃശൂരിൽ ് ആരോപിച്ചു സിഎജി റിപ്പോർട്ട് ചോർത്തി നൽകിയത് ക്ടിഫ്ബ്ബിയിൽ അന്വേഷണം ഉണ്ടാകുമെന്നും മുൻകൂട്ടി കണ്ടാണ്ട് ആഴ്മതി നടന്നില്ലങ്കിൽ മന്ത്രി എന്തിനാണ് അന്വേഷണത്തെ ഭയ്ക്കുന്നതെന്നും ശ്രീ

അതിനിടെ കോവിഡ് രോഗവ്യാപനം തടയാനുള്ള നിയന്ത്രണങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമീഷൻ കർശനമാക്കി

ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈയെ നോർത്ത് ഇൌസ്റ്റ് യുണൈറ്റഡ് ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു